പൂജാവേളയിൽ ശബരിമലയിൽ വൻതി രക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ആകാശവാണി പത്ത നംതിട്ട ലേഖകൻ റിപ്പോർട്ട് ചെയ്തു

നെയ്യഭിഷേകത്തിനും വൻതിരക്കാണ്

മണ്ഡലപൂജാവേളയിലും തുടർന്നും അനിഷ്ട സംഭ വങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശബരിമലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രേൻ സന്നിധാനത്ത് പറഞ്ഞു ആക്ടിവിസം പ്രദർശിപ്പിക്കേണ്ട വേദിയല്ല ശബരിമലയെന്നും കടകംപള്ളി വൃക്തമാക്കി

യുവതീപ്രവേശന വിഷയത്തിൽ ഗവൺമെന്റിന് പ്രത്യേക താൽപര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഗവൺമെന്റ് നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു കുറേ ചട്ടമ്പിമാരുടെ മുദ്രാവാക്യം വിളി കൊണ്ടോ എതിർപ്പു കൊണ്ടോ അല്ല യുവതീ പ്രവേശനത്തെ പ്രോത്സാഹിപ്പിക്കാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി

എൻ ഡി എ യുടെ പരിപാടിയായിരുന്നില്ല അയ്യപ്പ ജ്യോതി എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഇന്നലെ നടന്ന അയ്യപ്പ ജ്യോതിയിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ പ്രങ്കെടുത്തവർക്ക് നേരെ സിപിഐഎം ആസൂത്രിതമായിരുന്നുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു സിപിഐഎം ഇതിന് കനത്ത വില നൽകേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു

അക്രമത്തിന് എതിരെ ദേശീയ വനിതാ കമ്മീഷനും ദേശീയ ബാലാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

കാസർകോഡ് ബസിന് നേരെയുണ്ടായ കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റി രുന്നു ജനുവരി ഒന്നിലെ വനിതാമതിൽ വർഗ്ഗീയ മതിൽ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു ജനങ്ങളെ ജാതീയമായി ഭിന്നിപ്പിക്കുന്ന മതിലാണ് ഗവണ്മെന്റ് രൂപീകരിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടു പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയഭീതി കൊണ്ടാണ് നാല് കക്ഷികളെ കൂടി ചേർത്ത് മുന്നണി വിപുലീകരിച്ചത് അഴിമതിയുമായി സന്ധിചെയ്യാൻ സി പി ഐ എമ്മിന് ഒരു മടിയുമില്ലെന്ന് ഇന്നലത്തെ വിപുലീകരണത്തിലൂടെ ബോധ്യമായിരിക്കുകയാണ്

വനിതാ മതിൽ സംഘാടനം ചർച്ച ചെയ്യുന്നതിന് യോഗം വിളിക്കാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി

ഐസിസ് ബ്ന്ധത്തെ തുടർന്ന് അറസ്റ്റിലായ വയനാട് സ്വദേശി ഹ്ബീബ് റഹ്മാൻ മറ്റ് പ്രതികളുമായി ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് എൻ ഐഎ വെളിപ്പെടുത്തി

ഇന്നലെയാണ് ഹബീബ് റഹ്മാനെ അന്വേ ഷണസംഘം കസ്റ്റഡിയിലെടുത്തത്

ഒരേ സമയം രണ്ട് മൃതദേഹങ്ങൾ സംസ്ക്കരിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്

രാജ്യസഭ നടപടികളൊന്നും പൂർത്തിയാക്കാനാവാ തെയാണ് ഇന്നത്തേക്ക് പിരിഞ്ഞത് കാവേരി നദിയിൽ കർണാടകം അണക്കെട്ട് നിർമ്മിക്കുന്നതുൾപ്പെടെ വിഷ യങ്ങളുന്നയിച്ച് പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഇന്നത്തേക്ക് സഭ പിരിയുകയാണെന്ന് രാജ്യ സഭാ ചെയർമാൻ പറഞ്ഞു ലോക്സഭയിൽ മുത്തലാഖ് ബില്ലിൽ ചർച്ചയാകാ മെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നെങ്കിലും റഫേൽ വിഷ യത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യം അവർ വീണ്ടും ഉന്നയിച്ചു സഭാം ഗങ്ങളോട് ഇന്നു മുഴുവൻ സമയവും സഭയിലുണ്ടാവ ണമെന്ന് കാണിച്ച് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്

അപകടം നടന്നയുടൻ രണ്ട് നാവികരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല

ശുദ്ധമായ മാംസോത്പാദനം ഉറപ്പു വരുത്തുന്ന രീതിയിൽ ഫാമുകളും കടകളും നവീകരിക്കുക ഉപഭോക്താവിന് ന്യായവില സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോ ടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്വന്തമായി ഇറച്ചി ക്കോഴി വളർത്തി വിപണനം ചെയ്യുമ്പോൾ വിപണി യിലെ ചാഞ്ചാട്ടം മൂലമുണ്ടാകാവുന്ന വലിയ നഷ്ട ത്തിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാൻ പദ്ധതി സഹായകരമാകും കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിൽ നിർമ്മിച്ച മേൽപ്പാലങ്ങൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്പ് സംസ്ഥാന പ്രസിഡണ്ട് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന ലോംഗ് മാർച്ച് തുടങ്ങി കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്ന് വളാഞ്ചേരിയിലെ മന്ത്രിയുടെ വസതി വരെയാണ് മാർച്ച് എ പി അനിൽകുമാർ എം

തൊഴിൽ കാത്തുനിൽക്കുന്ന കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരുടെയും പ്രതിഷേധം കൂടിയാണ്

മാർച്ച് വൈകീട്ട് സമാപി ക്കും രാജ്യത്തെ വികസ്വര ജില്ലകൾക്കായി നടത്തുന്ന പദ്ധ തിയുടെ രണ്ടാംഘട്ട റാങ്കിംഗ് നിതി ആയോഗ് ഇന്ന് പുറത്തിറക്കും

മാർച്ചോടെ രാജ്യാന്തര സർവീസും തുടങ്ങും മാർച്ചിൽ ജെറ്റ് എയർലൈൻസും സർവീസിന് തുടക്കം കുറിയ്ക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനോടും ആഭ്യന്തര സർവീസ് നടത്താൻ കിയാൽ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ചോടെ വിദേശ വിമാനക്കമ്പനികൾക്കും സർവീസിന് അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്

എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഡൽഹി മുംബൈ ദുബായ് എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും

രാജ്യസഭാംഗമായ വി മുരളീധ രന് കർണാടകയുടെ ചുമതല നൽകിയിട്ടുണ്ട് കേരളവും തമിഴ്നാടും ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ ചുമതല ക്കാരെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു

പുകവലിക്ക് പുറമേ പാൻമസാലയടക്കം എല്ലാ പുകയില ഉപയോഗവും തടയാനാണ് കമ്മിഷന്റെ നിർദ്ദേ ശം ഈ വർഷത്തെ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി എം

ഉച്ചയ്ക്ക് ശേഷം ശ്രീകാര്യം ചാവടിമുക്ക് എനർജി മാനേജ്മെന്റ് സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്